പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ചൈന സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും

പ്രാദേശിക വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണം ശക്തമാക്കുകയാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ലക്ഷ്യം ഭീകരതയ്ക്കെതിരെയുള്ള സഹകരണം ശക്തമാക്കുകയും മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പു വരുത്തുകയുമാണ് ഉച്ചകോടിയിൽ ഇന്തൃയുടെ ലക്ഷ്യം

പ്രധാനമന്ത്രി ജൻ ഔഷധി പദ്ധതിയുടെ ഗണഭോക്താക്കളുമായി നടന്ന പ്രഭാഷണത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി ദീപു

അതിന്ന്റൽ പാവപ്പെട്ടവന് താങ്ങാവുന്ന വിലയിൽ ജീവൻ ആക്ഷ്മാർ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രി്ധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി പദ്ധതി നടപ്പിൽ വരുത്തിയത്

ആരോഗൃകരമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ സ്ച്ഛഭാരതം പദ്ധതി ഏറെ സഹായിക്കുന്നതായി പ്രധാനപറഞ്ഞു രാജ്യവ്യാപകമായി മൂവായിരം ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്

പ്രമേഹം ഹൃദ്രോഗം രക്ത സമ്മർദ്ദം എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇവയിൽപ്പെടു മുട്ടുമാറ്റ ശസ്ത്രക്രിയ ഇപ്പോൾ ചെലവു കുറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റാവശുപത്രികളിലുള്ള ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഇതിനുള്ള ചെലവ് ഗണൃമായി കുറച്ചു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കായിക സംബന്ധിയായ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി കശ്മീർ താഴ്വരയിലേയും ലഡാക്കിലേയും വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനായാണ് മന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം സംസ്ഥാന മന്ത്രി ജിതേന്ദ്ര സിംഗ് ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആഭ്യന്തര മന്ത്രിയെ അനുഗമിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പും കേന്ദ്രമന്ത്രി അവലോകനം ചെയ്തു മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഗവർണർ എൻ

വോറ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ആഭ്യന്തര മന്ത്രി കൂടിക്കാഴ്ച നടത്തും

പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ സൈനിക സംഘത്തിനു നേരെ അഞ്ചോളം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

ആക്രമണം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് കത്തിൽ വിശദീകരിക്കുന്നതായി പാർട്ടി വക്താവ് സമ്പീത് പത്ര ഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു സംഭവത്തിൽ നക്സലുകളുടെ പങ്കിനെ കുറിച്ച് പൂനെ പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരോധിത സംഘടനകൾക്ക് അക്രമത്തിലുള്ള പങ്കിനെയും ഇതിന് കോൺഗ്രസ് നല്കിയ പിന്തുണയും കത്തിൽ നിന്ന് വൃക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ അട്ടിമറിക്ക് കോൺഗ്രസ് എങ്ങനെയെല്ലാം ശ്രമിക്കുന്നു എന്നതിന് ഉദാഹരണമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇതിന് ഉത്തരം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആസൂത്രിത ഇതൊരു പ്രക്ഷോഭമായിരുന്നുവെന്നും ദളിതുകളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഇൌ കത്തിലൂടെ വ്യക്തമായതായും അദ്ദേഹം ആരോപിച്ചു

ഗോമതി ദക്ഷിണ ത്രിപുര ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാതാബരിയിൽ നിന്ന് സബ്രൂം വരെയാണ് പാത രാജ്യത്തിന്റെ വികസനത്തിന് പൌരന്മാരും അടിസ്ഥാന സൌകര്യങ്ങളും വലിയ പങ്കു വഹിക്കുന്നതായി രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ആക്ട് ഇൌസ്റ്റ് നയത്തിന്റെ ഭാഗമായി ക്യോന്ദഗവണ്മെന്റ് ഉത്തര പൂർവ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു

അഫ്ഗാൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് ഇരുരാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നതായും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ഒരു വർഷത്തിനിടെ ആയിരത്തിലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടന്നു

സക്കീർ നായ്കിന്റെ കൈമാറ്റം സംബന്ധിച്ച് മലേഷ്യൻ അധികൃതരിൽ നിന്നുള്ള പ്രതികരണത്തിന് കാക്കുകയാണെന്നും അദ്ദേഹം ഇതു സംബന്ധിച്ച ചോദൃത്തിന് മറുപടി നല്കി വിജയ്മല്ല്യയെ തിരിച്ചു കൊണ്ടു വരാനും മന്ത്രാലയം ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നീരവ് മോദിയെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭൃമായിട്ടില്ലെന്ന് അദ്ദേഹം വൃക്തമാക്കി

എട്ടാം പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ല

കേസിന്റെ വാദം ജമ്മുകാശ്മീരിന് പുറത്തേക്ക് മാറ്റണമെന്ന് സൂപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് പ്രതികളെയും അന്നു തന്നെ കോടതിയിൽ ഏഴു ഹാജരാക്കിയിരുന്നു കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് കേസിന്റെ വിചാരണ ജമ്മു കാശ്മീരിൽ നിന്ന് പഞ്ചാബിലെ പത്താൻകോട്ടിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്

ഗാന്ധിപ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ യാത്ര ശേഷമായിരുന്നു യാത്ര കൂടുതൽ വിവരങ്ങളുമായി ദീപു

ഈ സംഭവത്തോടെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യാക്കാർ നേരിടുന്ന വർണ്ണവിവേചനത്തിനെതിരെ സത്യഗ്രഹ സമരവും സമാധാനപരമായ പ്രതിഷേധങ്ങളും ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഹിംസ സമരങ്ങൾക്ക് തുടക്കമിട്ട ഫീനിക്സ് സെറ്റിൽമെന്റിൽ ശ്രീമതി

അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനാണ് മന്ത്രി സുഷമ ദക്ഷിണാഫ്രിക്കയിലെത്തിയത് നേരത്തെ നടന്ന മറ്റൊരു ചടങ്ങിൽ അനീതിയും വിവേചനവും നേരിട്ടവർക്ക് പ്രതീക്ഷ നൽകിയവരാണ് മഹാത്മഗാന്ധിയും നെൽസൺ മണ്ടേലയുമെന്ന് മന്ത്രി സുഷമ സ്വരാജ് ചൂണ്ടിക്കാട്ടി

സമാധാനം സമൃദ്ധി വികസനം എന്നിവയ്ക്കായി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും കൈകോർത്ത് പ്രവർത്തിക്കുമെന്നും സുഷമ സ്വരാജ് പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ചർച്ചയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രപ്രതിനിധികൾക്ക് പരസ്പരം യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായാണ് ഇത്തരമൊരു ഉന്നതതല ചർച്ചു അധികാരത്തിലേറിയ ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെതിരെ നിശിത വിമർശനങ്ങളാണ് നടത്തുന്നത്